ഡൽഹി നിയമസഭ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി

വെള്ളിയാഴ്ച പ്രാർത്ഥന്യുടുട്ട് പശ്ചാത്തലത്തിൽ ഉത്തർപ്രദേശിൽ കർശ്ന് സുരക്ഷാ മുൻകരുതലുകൾ

മൂപ്പൂ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് ക്രമ്മീഷ്ണർമാരായ അശോക് ലവാസ സുശീൽ ചന്ദ്ര എന്നിവർ യോഗം ചേർന്നാണ് ഒരുക്കങ്ങൾ വിലയിരുത്തിയത് ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു ഡൽഹി ചീഫ് സെക്രട്ടറി പൊലീസ് കമ്മീഷണർ എന്നിവരുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക യോഗം ചേർന്നു

ഇതിന്റെ ഭാഗമായി അലിഗഡ് മഥുര ആഗ്ര ബുലന്ദ്ഷഹർ എന്നിവിടങ്ങളിൽ ഇന്റർനെറ്റ് വിച്ഛേദിച്ചു

ജോധ്പൂർ വ്യോമത്താവളത്തിൽ ഏഴ് മിഗ് വിമാനങ്ങൾക്കുള്ള വിടപറയൽ ചടങ്ങ് നടക്കും സൌത്ത് വെസ്റ്റേൺ എയർ കമാൻഡ് എയർ ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് എയർ മാർഷൽ എസ് കെ ഘോട്ടിയ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും

വിശദാംശങ്ങളുമായി ശ്രീലത

ഡൽഹിയിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്

നിരവധി വിദ്യാലയങ്ങൾക്ക് അതിശൈത്യം കാരണം അവധി നൽകിയിരിക്കുകയാണ് ന്യൂസ്ഡെസ്ക് ആകാശവാണി

ഗുജറാത്ത് ഗവൺമെന്റിന്റെ കീഴിലുള്ള സ്വയംഭരണ മികവ് കേന്ദ്രമായ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് സംരംഭകത്വം സ്ഥാപിച്ചിരിക്കുന്നത്

പാകിസ്ഥാൻ ഭാഗത്ത് നിന്നെത്തുന്ന വെട്ടുകിളികൾ ഗുജറാത്തിലെ വിവിധ ജില്ലകളിൽ വ്യാപകമായ വിളനാശത്തിന് കാരണമാകുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഗുജറാത്തിന് വേണ്ട എല്ലാ സഹായവും നൽകുമെന്ന് കേന്ദ്ര കൃഷി സഹമന്ത്രി പുരുഷോത്തം റുപാല പറഞ്ഞു വരുന്ന ആറ് ഏഴ് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് കണക്കാക്കുന്നത്

ജനുവരി ഒന്നു മുതൽ പതിനിൽ വരെ പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ നേരിൽ സന്ദർശിച്ച് പ്രക്ത്വ നിയമത്തിനെതിരായി കോൺഗ്രസ് നടത്തുന്ന കുപ്രചരണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ശിവ്രാജ് സിംഗ് ചൌഹാൻ ഭോപ്പാലിൽ അറിയിച്ചു

ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി തുടർച്ചയായ സംഘടിത ശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കശ്മീരിൽ പോലീസ് സി ആർ

എഫ് എസ് എസ് ബി ഐ ടി ബി പി സേനകളിലെ ഉദ്യോഗസ്ഥരുമായും ജവാന്മാരുമായും സംവദിക്കുകയായിരുന്നു അദ്ദേഹം സ്ഥായിയായ സമാധാനം സ്ഥാപിക്കുന്നതിനായി ജമ്മു കശ്മീർ പോലീസും സുരക്ഷാസേനയും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു എല്ലാ സുരക്ഷാ വിഭാഗങ്ങളുമായും ജമ്മു കശ്മീർ പോലീസിന് വളരെ നല്ല ബന്ധമാണുള്ളതെന്നും അദ്ദേഹം അറിയിച്ചു

ഇതിൽ വീഴ്ച വരുത്തിയാൽ ജമ്മുകാശ്മീർ ആഭ്യന്തര സെക്രട്ടറി വിശദീകരണം നൽകോവരുമെന്നും കോടതി പറഞ്ഞു

സംസ്ഥാന ധനകാര്യ കമ്മീഷണർ അടൽ ദൂലുവാണ് ഇക്കാര്യം അറിയിച്ചത്

ന്നും അദ്ദേഹം പറഞ്ഞു

ബീജിംഗിൽ വാർത്താ ് സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് കൂടുതൽ വിവരങ്ങളുമായിച്ചുശ്രീലത

ഇരു രാജൃങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചുകളും സഹകരണവുമാണ് ഈ ബന്ധം മെച്ചപ്പെടാൻ കാരണമായത് ഇരു നേതാക്കളുടേയും മാർഗ്ഗനിർദ്ദേശത്തിന് കീഴിൽ സൈനിക ബന്ധം വികസിപ്പിക്കാൻ ഇന്ത്യയോടൊപ്പം പ്രവർത്തിക്കാൻ ചൈന തയ്യാറാണെന്നും വു ക്യാൻ വ്യക്തമാക്കി

അതിർത്തി തർക്കത്തിന് പരസ്പര സമ്മതത്തോടെയുള്ള പരിഹാരം കണ്ടെത്താൻ ഊർജ്ജിത ശ്രമം തുടരുമെന്ന് ചർച്ചയിൽ തീരുമാനമുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് ആകാശവാണി

പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ശനിയാഴ്ച ഇന്ത്യ വീണ്ടും ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും

ഹിരാനഗർ സെക്ടറിലെ ഛൻ ടണ്ഠ ഗ്രാമത്തിലെ ജനവാസ കേന്ദ്രത്തെ ലക്ഷ്യമാക്കിയാണ് പാക് വെടിവയ്പ് ഉണ്ടായത്

ഇന്ത്യൻ അതിർത്തി സേന പാകിസ്ഥാന് ഉചിതമായ തിരിച്ചടി നൽകി

പുതുവത്സരത്തിന് മുന്നോടിയായി നടക്കുന്ന ആഘോഷങ്ങൾ ലഡാക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ മൂന്ന് മുതൽ ്ളമ്പത് ദിവസം വരെ നീ നിൽക്കും

ലഡാക്ക് ബുദ്ധിസ്റ്റ് അസോസിയേഷനും ഭരണകൂടവും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്

മുഖ്യമിന്റ്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു

്ക്രേരള്തിൽ നിപ്പ ബാധയുണ്ടായപ്പോൾ അതു ഫലപ്രദമായി നേരിടുന്നതിന് ഗവൺമെന്റിനും ആരോഗൃവകുപ്പിനും സാധിച്ചതായും അദ്ദേഹം അറിയിച്ചു ഈ സാഹചര്യത്തിലാണ് ലോകോത്തര നിലവാരത്തിലുള്ള വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാൻ തീരുമാനിച്ചത് തോന്നയ്ക്കലിൽ ഗവൺമെന്റ് സ്ഥാപിച്ച വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാനും മാസങ്ങൾക്കകം പ്രവർത്തന സജ്ജമാകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

കേരള പഞ്ചായത്ത് നിയമവും നിയമവും ഭേദഗതി ചെയ്യുന്നതിന് ഓർഡിനൻസ് മുനിസിപ്പൽ പുറപ്പെടുവിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു